പ് എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരകൊറിയൻ നേതാവ് കിം ജോംഗ് ഉന്നുമായി അടുത്തമാസം കൂടിക്കാഴ്ച നടത്തും

മലേഷ്യൻ മാസ്റ്റേഴ്സ് ടൂർണമെന്റിന്റെ സെമിയിൽ ഇന്ത്യയുടെ സൈന നെഹ്വാൾ പരാജയപ്പെട്ടു

സേനയ്ക്ക് ആവശ്യമായ ആർട്ടിലറി ഗണ്ണുകളാണ് ഈ ഇവിടെ ഉൽപാദിപ്പിക്കുക

ദക്ഷിണ ഗുജറാത്തിലും അയൽ സംസ്ഥാനങ്ങളിലും ഉള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ മേഖലയിലെ അർബുദ ആശുപത്രി തുടർന്ന് പ്രധാനമന്ത്രി ദാദ്ര നാഗർ ഹവേലിയുടെ തലസ്ഥാനമായ സിൽവാസയിലേക്ക് പുറപ്പെട്ടു സിൽവാസയിലെ സേയ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ മെഡിക്കൽകോളേജിന് തറക്കല്ലിടും ദാദ്ര ആന്റ് നാഗർ ഹവേലി ഡാമൻ ആന്റ് ഡ്യൂ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മികച്ച ചികിത്സ ഇതിലൂടെ ലഭ്യമാകും

മോദി വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവ്വഹിക്കും

ഗാന്ധിനഗറിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉസ്ബക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവ് ന്റെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത് മാൾട്ട ചെക് ഡ്യാനിഷ് പ്രതിനിധികളുമായും സമ്മേളനത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി

മൂന്ന് ദിവസങ്ങളിലായി നട്ടക്കുന്ന ഉച്ചകോടിയിൽ ഗതാഗത തുറമുഖ മേഖലകളിലാണ് കൂടുതൽ കരാറുകളും ഒപ്പുവെയ്ക്കപ്പെട്ടത്

തുറമുഖ ഗതാഗത മേഖലകളുമായി ബന്ധപ്പെട്ടുള്ളവയാണ് മിക്ക ധാരണാപത്രങ്ങളുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

പ്രതിരോധ ഉൽപാദന സെക്രട്ടറി അജയ്കുമാർ ഇന്നലെ ഗാന്ധിനഗറിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ആഗോള നിക്ഷേപക ഉച്ചകോടിയിലാണ് ഇക്കാര്യ അറിയിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പ്രതിരോധ ക്യ്റ്റുമതി ഇരട്ടിയായതായി ഗുജറാത്തിലെ പ്രതിരോധ എയ്റ്റോനോട്ടിക്സ് തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സംഘട്ടിപ്പിച്ചു സെമിനാറിൽ അദ്ദേഹം പറഞ്ഞു

വിശദാംശങ്ങളുമായി വിന്ോദ്

ഇതിലൂടെ യാത്രാ സമയവും ഗതാഗത കുരുക്കും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ

ഓരോ കോച്ചിലും രണ്ട് ശൌചാലയ യൂണിറ്റുകൾ ഉള്ള മെമു ട്രെയിനുകൾ കൂടുതൽ സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്രയാണ് നൽകുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭാരൃ റാബ്റി ദേവിയുടെയും മകൻ തേജസി യാദവിന്റെയും ജാമൃവും ഇതോടൊപ്പം നീട്ടിയിട്ടുണ്ട് റെയിൽവേയിൽ കരാറുകൾ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട അഴിമതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ലാലുവിനും കുടുംബത്തിനുമെതിരെ കേസെടുത്തത്

വേദിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മിസൈൽ ആണവ നിരായുധീക രണം സംബന്ധിച്ച് കഴിഞ്ഞ ജൂണിലെ സിംഗപ്പൂർ ചർച്ചയിൽ ഉണ്ടായ ധാരണ ഉത്തരകൊറിയ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല ഉത്തര കൊറിയൻ പ്രതിനിധി കിം യോംഗ് പോലുമായി ട്രംപ് നട ത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് പുതിയ പ്രഖ്യാപനം ഉണ്ടായത്

മുരിച്ചുവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം സംബന്ധിച്ച് പ്രാഥ്മിക നിഗമനം മാത്രമാണെന്നും ഇതിൽ മാറ്റം വരാമെന്നും ഹിഡ്ഡാൽഗൊയിലെ ഗവർണ്ണർ ഒമർ ഫയാദ് അറിയിച്ചു മെക്സിക്കോ സിറ്റിക്ക് സമീപം പൈപ്പ്ലൈനിൽ അനധികൃത ഡ്രില്ലിങ് നടത്താൻ മോഷ്ടാക്കൾ ശ്രമിച്ചതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്

കേരളം ആൻഡമാൻ എന്നിവിടങ്ങളിലുള്ള ഡോർണിയർ നിരീക്ഷണ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ പേരെ നിയമിക്കാനും അനുമതിയായി

മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇതോടെ സമാപനമാകും ആചാരപരമായ ചില ചടങ്ങുകളാണ് നാളെ സന്നിധാനത്ത് നടക്കുക ഭക്തജനങ്ങൾക്ക് നാളെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അതേസമയം ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്തസംഗമം നാളെ വൈകിട്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നടക്കും

തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി രണ്ട് ലക്ഷത്തിലേറെ പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു

സ്പെയിനിന്റെ കരോലിന മാരിനാണ് സൈനയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചത്

പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുട ശ്രീകാന്ത് നേരത്തെ പുറത്തായിരുന്നു

ബോക്സിംഗ് റിംഗിൽ നിന്നായിരുന്നു കൂടുതൽ മെഡലുകളും ഹരിയാന നേടിയത് ഖേലോ ഇന്ത്യയിൽ മഹാരാഷ്ട്രയ്ക്കും ഇന്ന് ശുഭദിനമായിരുന്നു എട്ട് സർണ്ണമാണ് ഇന്നവർ കരസ്ഥമാക്കിയത് ഇതിൽ അഞ്ചും ബോക്സിംഗിൽ നിന്നാണ്

ഹരിയാനയും മധ്യപ്രദേശുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ